ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിനുളള പ്രചാരണം ഉച്ഛസ്ഥായിയിൽ

പ്രതിപക്ഷ കക്ഷികൾ ഒരിക്കൽപ്പോലും വികസനത്തെക്കുറിച്ച് പറയുന്നില്ലെന്നും അവർക്ക് സ്വന്തം കാരൃത്തിൽ മാത്രമാണ് താല്പ്പ്ര്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മമതാ ബാനർജിയുടെ മോർഫ് ചെയ്ത ചിത്രം സമൂഹമാധൃങ്ങളിൽ പ്രദർശിപ്പിച്ചതിന് ബിജെപി നേതാവ് പ്രിയങ്ക ശർമ്മയെ അറസ്റ്റ് ചെയ്ത നടപടി നിയമപരമല്ലെന്ന് സുപ്രീം കോടതി

തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ജൂൺ ആറോടെ കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്

കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ് മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രർമോദി ഇന്ന് ബിഹാറിലെ പാലിഗഞ്ചിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസ്ംബോധന ചെയ്തു

മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ സുഷമാസ്ഖരാജ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരും ഉത്തർപ്രദേശിലെ വിവിധ യോഗങ്ങളിൽ പ്രസംഗിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് പഞ്ചാബിലെ ഫരീദ് കോട്ട് ലുധിയാന എന്നിവിടങ്ങളിൽ പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിച്ചു

രാഷ്ട്രീയ ലോക്ദൾ എന്നീ കക്ഷികൾ ഇന്ന് ഉത്തർപ്രദേശിലെ മോ ദിയോറിയ എന്നിവിടങ്ങളിൽ വമ്പൻ റാലികൾ സംഘടിപ്പിച്ചു

പശ്ചിമബംഗാളിലെ ഒൻപതും ബിഹാറിലെയും മധ്യപ്രദേശിലെയും എട്ടും ഹിമാചൽപ്രദേശിലെ നാലും ജാർഖണ്ഡിൽ മൂന്നും ചണ്ഡിഗഡിലെ ഒന്നും മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിൽ ദൂർബലമായ ഗവൺമെന്റ് രൂപീകരിക്കാനാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതെന്നും ഇതുമൂലം അവർ തങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി എൻ ഡി എ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളിലൂടെമാത്രമേ ഭീകര പ്രവർത്തനത്തെ അടിച്ചമർത്താനാകു എന്നും ശ്രീ മോദി പറഞ്ഞു

തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ്രനേരിട്ടെത്തിയ ടി എം സി എം പിമാർ ബിജെപി പ്രവർത്തകർ അക്രമം നടത്തുന്ന വീഡിയോ ക്ലിപ്പിങ്ങുകളും കമ്മീഷന് മുൻപിൽ ഏഹ്ജരാക്കി അക്രമങ്ങൾ നടത്തുവാനായി ബിജെപി മറ്റ് സംസ്സ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തകരെ കൊൽക്കത്തയിൽ എത്തിച്ചിരുന്നതായും ടി എം സി എം പി സുഖേന്ദ്ര ശേഖർ റോയ് കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നു

ആറാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവേളയിൽ പശ്ചിമബംഗാളിൽ അല്ലാതെ മറ്റൊരിടത്തും അക്രമങ്ങൾ അരങ്ങേറിയിട്ടില്ലെന്ന് അമിത്ഷാ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ്സാണ് അക്രമം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു

സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക തനിമ ബിജെപി തകർത്ത് തരിപ്പണമാക്കുകയാണെന്ന് കോൺഗ്രസ് വക്താവ് അഭിഷേഖ് സിംഗ്പി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്തെ സാംസ്കാരിക തനിമ കാത്തുസൂക്ഷിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു

ഇത് മുൻകൂട്ടി ബിജെപി തീരൂമാനിച്ച് പദ്ധതിയാണെന്നും മമതാ ബാനർജി പറഞ്ഞു കൊൽക്കൃത്തയിലെ വിദ്യാസാഗർ കോളേജിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉ ായ അക്രമ സംഭവങ്ങളെ വിവിധ സംഘടനകൾ അപ്പലപിച്ചതായി ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

തമിഴ്നാട് ഗുജറാത്ത് കേരളം പുതുച്ചേരി ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും റിട്ടേണിംഗ് ഓഫീസർമാരും പരിപാടിയിൽ പങ്കെടുത്തു സീനിയർ ഡെപ്യൂട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഉമേഷ് സിൻഹ സന്ദീപ് സക്സേന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി വോട്ടെണ്ണലിന് വേ ി മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറഞ്ഞു

കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചിട്ടും പ്രിയങ്ക ശർമ്മയെ ജയിലിൽ നിന്ന് വിട്ടയച്ചില്ലെന്ന് സഹോദരൻ കോടതിയെ ബോധിപ്പിച്ച വേളയിലാണ് പരമോന്നത കോടതിയുടെ ഈ പരാമർശം പ്രിയങ്കയെ ഉടൻ ജയിൽ മോചിതയാക്കിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കുമെന്ന് ജസ്റ്റീസുമാരായ ഇന്ദിരാ ബാനർജി സൃത്ജീവ് ഖന്ന എന്നിവരുൾപ്പെട്ട അവധിക്കാല ബഞ്ച് മുന്നറിയിപ്പു നൽകി

പ്രിയങ്കയോട് മാപ്പ് എഴുതിക്ക്ന്റൽകാൻ ആവശ്യപ്പെട്ട പരമോന്നത കോടതി അവർക്ക് ഇന്നലെ ജാമ്യം അനുവദിച്ചിരുന്നു

ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി വിവേക് ഭരദാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒഡീഷയിൽ സന്ദർശനം നടത്തിയത് മൂന്ന് ദിവസം സംസ്ഥാനത്ത് സന്ദർശനം നടത്തിയ സംഘം ഫോനി ചുഴലിക്കാറ്റ് സർവ്വനാശം വിതച്ച പുരി കട്ടക് ഖുദ്രാ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലെത്തി ദുരിതബാധിതരായ ജനങ്ങളുമായി ആശയവിനിമയം നടത്തി

സംഘടന അൽ ഖെയ്ദയുമായി ചേർന്ന് നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടു ന്നാണ് യു എൻ വിലയിരുത്തൽ ജെയ്ഷേ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി യു എൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി

ഐ

ജമാത് ഉദ് ധാവയുടെ രാഷ്ട്രീയ അന്തർദേശീയ വിഭാഗത്തിന്റെ തലവനാണ് റഹ്മാൻ ഇയാൾ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിക്കുകയും നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു

ഭ്രൂണഹത്യ ചെയ്യുന്ന ഡോക്ടർമാർക്ക് ജീവപര്യന്തം തടവ് ഉറപ്പാക്കുന്ന നിയമമാണ് സെനറ്റ് പാസ്സാക്കിയത്

അതേസമയം ബലാൽസംഗം മുലം ഗർഭിണിയാക്കപ്പെടുന്നവർക്കുപോലും നിയമത്തിൽ ഇളവ് ഇല്ലാത്തതിനാൽ പുതിയ നിയമം വിവാദമായിരിക്കുകയാണ് ഇത്തരത്തിൽ നിയമം നടപ്പാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നിയമനടപടികൾ സ്വീകരിക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനയായ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ വ്യക്തമാക്കി

സാധാരണയിൽ തീയതിയിൽ നിന്ന് അഞ്ച് ദിവസം ് കഴിഞ്ഞാണ് ഇത്തവണ മൺസൂൺ കേരളത്തിലെത്തുക

മാനസരോവർ യാത്ര തീർത്ഥാടകരുടെ ആത്മീയ തീക്ഷണതയ്ക്ക് ഉപരിയായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സുദൃഡമാക്കുന്നതിനും ഉപകരിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ പറഞ്ഞു

ഇന്ത്യൻ ദേശീയ ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന സ്റ്റീഫൻ കോൺസ്റ്റന്റയിൻ ജനുവരിയിൽ മടങ്ങിയതിനുശേഷം ടീമിന് ഒരു പരിശീലകനു ായിരുന്നില്ല

ഈ ദിനം രാജ്യത്ത് കരസേനാ ദിനമായി ആചരിക്കുന്നു

കരിയപ്പ അന്തരിച്ചത്